പ്രകടനമാണ് പാർലമെന്റിന്റെ പ്രവർത്തനത്തിലുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗ്യങ്ങൾക്കുള്ള ഫ്ളാറ്റുകൾ പ്രധാനമന്ത്രി ഉള്ള്ലാടനം ചെയ്തു

ചരിത്രത്തില്ല് ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

സ്ഥിരീകരിച്ചു ഡൽഹി മഹാരാഷ്ട്ര ഗുജറാത്ത് അസം സംസ്ഥാനങ്ങൾ കോവിഡ് തൽസ്ഥിതി വിവരം നൽകണമെന്ന് സുപ്രീം കോടതി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലും പാർലമെന്റ് നടപടികൾ തടസം കൂടാതെ നടന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ എം പി മാർക്കായി നിർമിച്ച ബഹുനില ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന വോയ്സ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പാർലമെന്റിന്റെ പ്രവർത്തനത്തിലുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും നിരവധി മുൻകരുതലുകളൂം സ്വീകരിച്ചായിരുന്നു സഭ ചേർന്നത്

ഡൽഹിയിൽ ഉൾപ്പെടെപൂർത്തിയാകാതിരുന്ന നിരവധി നിർമാണ പ്രവർത്തനങ്ങൾ എൻ ഡി

കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ പുതിയ്ക്ക്കെട്ടിടം ഇന്ത്യാ ഗേറ്റിനടുത്തുള്ള യുദ്ധസ്മാരകം ദ്ദേശ്രീയ പോലീസ് മെമ്മോറിയൽ എന്നിവയും ഇൌ സർക്കാറിന്റെ കാലത്താണ് പൂർത്തിയാക്കിയത്

പിമ്മാർക്കാ്യി നിർമിച്ച ഫ്ളാറ്റുകളിൽ ഹരിത മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയില്ലെ ഡോ

മാർഗിലാണ് പുതിയ ഫ്ളാറ്റുകൾ നിർമിച്ചത് പ്ര ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരൂരാജ്യങ്ങളും തമ്മിൽ വളരെക്കാലമായി നടക്കുന്ന ഉന്നത്തല ചർച്ചകൾ തുടരുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യിയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണ്ണക്പ്പർധിപ്പിക്കുന്നത് സന്ദർശനത്തിൽ ചർച്ചയാകും

ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു യോഗം ഓരോ സംസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിമാർ കാബിനറ്റ് സെക്രട്ടറിയെ ധരിപ്പിച്ചു ദുരന്തത്തിൽ പരമാവധി മരണവും നാശനഷ്ടവും ഒഴിവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ഗൌബ പറഞ്ഞു

എല്ലാ എംഎൽഎമാർക്കും കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സമ്മേളനം നടക്കുന്നത്

ഇന്ത്യൻ നാവികസേന ആതിഥേയത്വം വഹിക്കുന്ന പരിശീലന പരിപാടി ആൻഡമാൻ കടലിലാണ് നടക്കുന്നത്

ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നിയമസഭയിൽ നടത്തി അഭിപ്രായം കേട്ട് ഇക്കാര്യത്തിൽ തുടർനടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു ഭേദഗതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നതോടെയും ജനാധിപത്യ സംരക്ഷണത്തിനായി നിലക്കൊള്ളുന്നവർ ആശങ്ക പ്രകടിപ്പിച്ചതോടേയുമാണിതെന്ന് മുഖ്യമീന്ത്രി പറഞ്ഞു

വരാനിരിക്കുന്ന മാസങ്ങളിൽ രോഗികളുടെ എണ്ണം വർധിച്ചാൽ സ്വീകരിക്കാനിരിക്കുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഈ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു കോവിഡ് മഹാമാരിയെ നേരിടാൻ ഡൽഹി സർക്കാർ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണെന്നും ഡൽഹിയിലെ നിലവിലുള്ള സാഹചര്യം എന്താണെന്നും ഡൽഹി സർക്കാരിനോട് കോടതി ആരാഞ്ഞു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് നിർദേശങ്ങൾ പുറപ്പെടുവിച്ചത്

ഭക്കസുകൾ കൂടുതലുളള എട്ടുസംസ്ഥാനങ്ങളുമായുളള യോഗൃത്തിന്റ് ശേഷം വാക്സിൻ വിതരണം സംബന്ധിച്ച് എല്ലാ സ്റ്റ്സ്ഫാ്നങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോഗം നൂട്ടത്തുമെന്നാണ് റിപ്പോർട്ട്

കൊറോണ വൈറസ് വ്യാപനത്തെ തടയുന്നതിന് സമയനുസൃതമായ പരിശോധനകൾക്കു ് നിർണായകമായ പങ്കുണ്ടെന്നും പഠനത്തിൽ പറയുന്നു

എൽ ഫുട്ബോളിൽ ഇപ്പോൾ ് ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ്

സി സ്റ്റേഡിയത്തിൽ ആണ് മത്സരം